പിക്കും കോൺഗ്രസ്സിനും ഒരേ നയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ബാബുപോൾ അന്ത രിച്ചു

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് നാലാം ജയം

സുരേഷ് വിശ്വാസ പ്രമാണങ്ങളുടെയും ആചാരങ്ങളുടെയും സംര ക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നാടിന്റെ സാംസ്കാരിക പാരമ്പര്യവും നാട്ടിലെ ജനങ്ങൾ കാത്തു സൂക്ഷിച്ച പാരമ്പര്യവും ആക്രമിക്കപ്പെടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോഴിക്കോട്ട് എൻ

എയുടെ വിജയ് സങ്കല്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്ര മോദി കേരളത്തിലെ ഇരുമുന്നണികളും ദശാബ്ദങ്ങളായി ജനങ്ങളെ നിരാശരാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ ബി

പി ഒരു ബദൽ രാഷ്ട്രീയമാണ് മുന്നോട്ടുവയ്ക്കുന്നത് അത് ജനാധിപത്യത്തിന്റെയും കാരുണ്യത്തിന്റേതുമാണെന്നും പ്രധാന മന്ത്രി പറഞ്ഞു

എഫിന്റെയും എൽ

എഫിന്റെയും പേരിൽ മാത്രമാണ് വ്യത്യാസമെന്നും പവർത്തനങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലെന്നും മോദി പറഞ്ഞു എല്ലാവർക്കും വികസനം ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ദേശ സുരക്ഷ യുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വേണ്ടത്ര ഗൌരവമില്ലെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു ജനങ്ങളുടെ രക്ഷ നോക്കിയല്ല സന്തം രക്ഷ നോക്കിയാണ് ചിലർ കേരളത്തിലേക്ക് വരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അവ കാശപ്പെടുന്നവർ മുത്തലാഖ് വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണി ക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ട് ആദർശങ്ങൾ തമ്മിലെ ഏറ്റുമുട്ടലാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറ ഞ്ഞു നാനാത്വത്തിൽ ഏകത്വത്തിനും എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നതിനും കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ ഒരാദർശം മാത്രം ഇന്ത്യ ഭരിക്കണമെന്നാണ് ബി

പിയും ആർ

തമിഴ്നാട്ടിലെ കൃഷ്ണ

കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത മിനിമം വരുമാനം ഉറപ്പാ ക്കുന്ന ന്യായ് പദ്ധതി നടപ്പാക്കുന്നതിന് ഇടത്തരക്കാർക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും സമ്പന്നരിൽനിന്ന് ഇതിനായി നികുതി ഈടാക്കുമെന്നും രാഹുൽ അറിയിച്ചു

പിക്കും കോൺഗ്രസ്സിനും പേരിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നും ഇരുപാർട്ടികളും അധികാരത്തിൽ വന്നാൽ നടപ്പാക്കു ന്നത് ഒരേ നയമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു

നവ ഉദാരീകരണ നയമാണ് ഇരുകൂട്ടരും നടപ്പാക്കു ന്നത്

എഫിന് സീറ്റ് കുറയുന്നത് ബി

പി അധികാരത്തിൽ തുടരുന്നതിനു മാത്രമേ സഹായിക്കൂ എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ തെരെഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം മോദി അധികാരത്തിൽ വരാൻ ബി

പിക്ക് വോട്ട് ചെയ്യണമെന്നില്ല സി

എമ്മിന് ചെയ്താലും മതി ഇനിയും മോദി അധികാരത്തിൽ എത്തിയാൽ പൌരവകാശമില്ലാത്ത സംഘപരിവാർ ഭരണഘടനയാവും രാജ്യത്തു

അമിത് ഷാ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരുമെന്ന് എ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻ ചാണ്ടി പറഞ്ഞു അമിത് ഷായുടെ പാകിസ്ഥാൻ പരാമർശവുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലീംല്ലീഗിന്റെ മതതരത്വ നിലപാടുകൾ എല്ലാവർക്കും മതസൌഹാർദ്ദത്തിന് വേണ്ടി ലീഗ് നൽകിയ സംഭാവനകൾ ആർക്കും തള്ളിക്കളയാനാവില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു

എസ് അച്യുതാനന്ദൻ പറഞ്ഞു കർഷക ആത്മഹതൃകൾ കാണാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

എ ബേബി പറഞ്ഞു കാസർകോഡ് ചുള്ളിക്കരയിൽ എൽ

എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയതലത്തിൽ ബി

രാമചന്ദ്രൻ പിള്ള ചേർത്തലയിൽ പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാലിടറാതെ നിന്ന ഗവൺമെന്റാണ് കേരളത്തിലേതെന്ന് അദ്ദേഹം പറഞ്ഞു കാർഷികമേഖലയെ നവ ഉദാരവൽക്കരണനയത്തിനെതിരെ ബദൽ നയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന ് ആൾ ഇന്ത്യ കിസാൻസഭ അഖി ലേന്ത്യേ പ്രസിഡന്റ് അശോക ് ധാവ്ളെ പറഞ്ഞു വിവിധ കർഷകസംഘടനകളുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ നടത്തിയ കർഷക പാർലമെന്റ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദി ഗവൺമെന്റ് വലിയ തട്ടിപ്പ് നടത്തിയ വിള ഇൻഷൂറൻസ ് പദ്ധതിയായ പ്രധാൻമന്ത്രി ഫസൽ ഭീമ യോജന റദ്ദാക്കില്ലെന്ന കോൺഗ്രസ് പ്രഖ്യാപനം കർഷകരോടുള്ള വഞ്ചനയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി സായ്നാഥ് കൂറ്റപ്പെടുത്തി

എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയതിനെത്തുടർന്ന് എൽ

എഫ് നൽകിയ പരാതി ജില്ലാ വരണാധികാരി തെരഞ്ഞെടുപ്പ് കമ്മീ ഷന് കൈമാറി

പൊന്നാനി മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർഥിയുടെ തിരഞ്ഞെടുപ്പുചിഹ്നം തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്നാരോപിച്ച് എൽ

എഫ് തിരഞ്ഞെടുപ്പു കമ്മിഷന് പരാതി നൽകി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കക്ഷിരഹിത സ്ഥാനാർത്ഥി കെ പി പ്രവീൺ മത്സരത്തിൽനിന്ന് പിന്മാറുന്നതായി അറിയിച്ചു രാഹുൽ ഗാന്ധി പ്രവയനാട്ടിൽ നിന്ന് ജയിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമായതിനാലാണ് പ്രചാരണം നടത്താതെ പിൻവാങ്ങുന്നതെന്ന് പ്രവീൺ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ബാബുപോൾ അന്തരിച്ചു

ഇടുക്കി ജില്ലയുടെ ആദ്യ കലക്ടറായിരുന്നു ഡാനിയൽ ബാബു പോൾ എന്ന ഡി

പാലക്കാട്ടും കലക്ട റായിരുന്നു കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രൊജക്ട് കോ ഓർഡിനേറ്റ റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ധനകാര്യം വിദ്യാഭ്യാസ്ഥം ടൂറി സം ഫിഷറീസ് ഗതാഗതം റവന്യൂ തുടങ്ങി ഒട്ടേറെ വകുപ്പുക ളുടെ സെക്രട്ടറിയായിരുന്നു

ഡിയായും പ്രവർത്തിച്ചു

സംസ്കാരം നാളെ വൈകിട്ട് നാലിന്റ് പെരുമ്പാവൂർ കുറു പ്പംപടി യാക്കോബായ പള്ളിയിൽ നടക്കും

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് നാലാം ജയം

ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് നാലിന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി എട്ടിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിങ്സ് ഇലവൻ പഞ്ചാബി നെയും നേരിടും കിഫ്ബി മസാല ബോണ്ടിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കിഫ്ബിയുടെ ഫയലുകൾ പരിശോധിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നരേന്ദ്ര മോദിയുടെ സാമ്പത്തിക നയമാണ് പിണറായിയും നടപ്പിലാ ക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തൃശ്ശൂർ പ്രസ്ക്ലബ്ബിൻെറ രാഷ്ട്രീയം പറയാം പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല കാസർകോട് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്രി

കേസ് സി ബി ഐയ്ക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ശരത് ലാലി ന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളുടെ ഹർജിയിൽ നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും സി

ഐ അന്വേഷണം ആവശ്യമില്ലെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു

ടി ബൽറാം എം

എ ഉദ്ഘാടനം ചെയ്യും

തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാംഘട്ടത്തിലേക്ക് കടന്ന തോടെ എറണാകുളം ജില്ലയിൽ പെരുമാറ്റച്ചട്ടലംഘന നിരീ ക്ഷണം ശക്തമാക്കി

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സുശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത് ജില്ലയെ ആറ് പൊലീസ് സബ് ഡിപ്പിഷനുകളായി തരംതിരിച്ച് ആറ് ഡി

കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് ഇന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായി അതാത് വിതരണ കേന്ദ്രങ്ങളിൽ നടക്കും സ്ഥാനാർഥികളുടെ ഫോട്ടോ പതിച്ച ബാലറ്റ് പേപ്പർ വോട്ടിംഗ് മെഷീനിലെ ബാലറ്റ് യൂണിറ്റിൽ ക്രമീകരിച്ച് സ്ഥാനാർഥികളുടെ എണ്ണം കൺട്രോൾ യൂണിറ്റിൽ സെറ്റ് ചെയ്യും സ്വീപ്പ് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കൊച്ചിയിൽ ഹരിതബൂത്ത് പ്രവർത്തനമാരംഭിച്ചു

ഫിഷറീസ് വകുപ്പിന്റെ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു

വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാൻ പാലക്കാട് ജില്ലയിൽ വാട്ടർ അതോറിറ്റി കൺട്രോൾറൂം തുറന്നു

ജില്ലയിലെ കനത്ത ചൂടും വേനലും കണക്കിലെടുത്ത് ആഘോഷങ്ങളിൽ പടക്കം ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് അഗ്നിശമന സേനാ മേധാവി അറിയിച്ചു